പൂന ഐസറിലെ ശാസ്ത്ര ജ്ഞരുമായി സംസാരിക്കവെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച ത് നേരത്തെ ഐസർ കാമ്പസ് സന്ദർശിച്ച പ്രധാനമന്ത്രി വിദ്യാർഥിക ളുമായി ആശയങ്ങൾ പങ്കുവെച്ചു സ്ത്രീ സുരക്ഷ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ജെ

കുറ്റവാളികളെ നിയമം കയ്യി ലെടുത്ത് ശിക്ഷിക്കുന്നത് ഉചിതമല്ലെന്നും നിയമസംവിധാനം ശക്തിപ്പെ ടുത്തി ശിക്ഷാ നടപടികൾ വേഗത്തിലാക്കുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു കുടുംബശ്രീ നാടകസംഘം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച തെരുവുനാടകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ കരിയർനയത്തിന്റെ കരട് തയ്യാറായിക്കഴിഞ്ഞ തായും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾകൂടി ഉൾപ്പെടുത്തി നയം പ്രഖ്യാ പിക്കുമെന്നും മന്ത്രി ടി

രാമകൃഷ്ണൻ അറിയിച്ചു നിലമ്പൂരിൽ ഗവൺമെന്റ് ഐ ടി ഐ യിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളു ടെയും ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഊർജ്ജ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന കാർഷിക രീതി കൾ സ്വീകരിക്കാൻ കർഷകർ മുന്നോട്ടുവരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു കാർഷിക ആവശ്യത്തിന് ഉപയോഗി ക്കുന്ന പമ്പ് സെറ്റുകളെ സോളാർ പമ്പ്സെറ്റുകളാക്കുന്ന വിശദീകരണ ക്ലാസ് ചിറ്റൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സുധാകരൻ അറി യിച്ചു

എല്ലാ റോഡുകളും സമ്പൂർണ ഗതാഗതയോഗ്യമായ നഗരമാക്കി ആലപ്പുഴയെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു പുനർനിർമിച്ച വട്ടപ്പള്ളി ആലിശ്ശേരി റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭൌതിക സാഹചര്യങ്ങളും അക്കാദമിക് മികവുകളും കൂടിച്ചേരുന്ന തോടെ ലോകത്തെ ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാ ഭ്യാസരീതി കേരളത്തിന്റേതാകുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങളും ഹൈടെക്ക് സ്കൂൾ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്കൂളുകളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഓരോ മണ്ഡലത്തിലും നാൽപത് കോടിരൂപ ചെലവിട്ടുകഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു ഭവനനിർമാണ ബോർഡിന്റെ വായ്പാ ഇളവിനുശേഷം വരുന്ന കുടി ശ്ശിക മൂന്നുമാസത്തിനകം അടച്ചുതീർക്കണമെന്ന് മന്ത്രി ഇ

നിശ്ചിത സമയപരിധിക്കുശേഷം ബോർഡിന്റെ ഭാഗ ത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്ന് കണ്ണൂരിൽ ഭവനനിർമാണ വായ്പാ കുടിശ്ശിക നിവാരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി വ്യക്തമാ ക്കി സ്കൂളുകളിൽ കുട്ടികൾക്ക് അപകടമോ രോഗാവസ്ഥയോ ഉണ്ടാ യാൽ രക്ഷിതാവ് വരുന്നതുവരെ കാത്തുനിൽക്കാതെ ചികിത്സ ലഭ്യമാ ക്കാൻ പ്രധാന അധ്യാപകർ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന ബാലാ വകാശ സംരക്ഷണ കമ്മിഷൻ ആവശ്യപ്പെട്ടു ഇതിന് പൊതു വിദ്യാഭ്യാസ സെക്രട്ടറി നിർദ്ദേശം നൽകണമെന്നും കമ്മിഷൻ നിർദ്ദേശിച്ചു ബത്തേരി സർവജന സ്കൂളിൽ രക്ഷിതാവ് വരുന്നതുവരെ കുട്ടിക്ക് ചികിത്സ നൽകാ തിരുന്ന അധ്യാപകരുടെ നടപടി ശരിയായില്ലെങ്കിലും അവർക്കെതിരേ വകുപ്പുതല നടപടിയോ ക്രിമിനൽ നടപടിയോ എടുക്കേണ്ടതില്ലെന്നും കമ്മിഷൻ ചെയർമാൻ പി സുരേഷ് അഭിപ്രായപ്പെട്ടു

കൃഷാന്ത് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ മേളയിലെ ആദ്യ പ്രദർശനമാണ് ഇന്ന് ഉരുട്ടിക്കൊലയ്ക്കു വിധേയനായ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന മായി ഘട്ട് ക്രൈം നം

ആനന്ദ് നാരായൺ മഹാദേവൻ ഒരുക്കിയ ഈ മറാത്തി ചിത്രത്തിലൂടെയാണ് ഗോവ ചലച്ചിത്ര മേളയിൽ ഉഷാ ജാദവ് രജതച കോരം സ്വന്തമാക്കിയത്

ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രം മൂത്തോൻ ഇന്ന് കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും മലയാള സിനിമയ്ക്ക് രാജ്യാന്തരതലത്തിൽ പ്രദർശന വിപണന സൌകര്യമൊരുക്കാൻ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റിന് ഇന്ന് തുടക്കമാകും പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിയിലെ ബി

എല്ലിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്ന നടപടി സ്ഥകാര്യവൽക്കരണമല്ല കൊള്ളയടി യാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു വൻകിടക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്രഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

സി എൽ സ്വകാര്യ വൽക്കരണത്തിനെതിരേ കൊച്ചിൻ റിഫൈനറിക്ക് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽഗാന്ധി കേരളാ കോൺഗ്രസ് എം ജോസ്

മാണി വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത ശനിയാഴ്ച കോട്ടയത്ത് വിളിച്ചക്കാൻ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു

മാണി വിഭാഗത്തിന്റെ തീരുമാനം ഇരു വിഭാഗത്തിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ മുന്നൂറു പേർ വീതം ഉണ്ട്

മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

വൈകിട്ട് ഏഴിനാണ് കളി ആരംഭിക്കുന്നത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഹൈദരാബാദിലെ ആദ്യ മത്സരം ജയിച്ച ഇന്ത്യയ്ക്ക് ഇന്നും ജയിക്കാ നായാൽ പരമ്പര സ്വന്തമാകും മലയാളിതാരം സഞ്ജു സാംസൺ കളി ക്കുമോയെന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ് ദേശീയ സീനിയർ വനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഇന്ന്

ഗോകുലം കേരള എഫ്

യും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്

യും തമ്മിലാണ് ആദ്യ മത്സ രം

പത്താമത് സംസ്ഥാന കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴി ക്കോട്ട് നടക്കും

മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷയ്ക്ക് ഏർപ്പെടു ത്തിയ പോലീസ് സുരക്ഷ ഗവൺമെന്റ് പിൻവലിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റി ന്റെയടക്കം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽത്തന്നെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവനുസരിച്ച് നാല് സായുധപോലീസു കാരെ തിരിച്ചുവിളിച്ചത് സുരക്ഷാ പരിശോധനാ കമ്മിറ്റിയുടെ തീരുമാ നപ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം ചാനൽചർച്ചകൾ ശക്തമായ കാലഘട്ടത്തിൽ ന്യായാധിപൻമാർ മാധ്യമവിചാരണയുടെ ഇരകളാകാതിരിക്കാൻ വളരെ ശ്രദ്ധ പുലർത്ത ണമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ

തോമസ് അഭി പ്രായപ്പെട്ടു കൊല്ലത്ത് അഡ പുത്തൂർ ഗോപാലകൃഷ്ണൻ എൻഡോ വ്മെന്റ് സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

മുന്നൂറിൽപരം പ്രസാധകരും ഇരുനൂറോളം എഴുത്തുകാരും പുസ്തകോത്സവത്തിൽ പങ്കാളികളായി തമിഴ്നാട് പുതുക്കോട്ടയിൽ വേളാങ്കണ്ണി തീർഥാടകരുടെ കാർ നിയ ന്ത്രണംവിട്ട് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു നെയ്യാറ്റിൻകര ഓലത്താനി സ്വദേശി സുധി ഭാര്യ ഷൈനി എന്നിവരാണ് മരിച്ചത് വ്യവസായ പ്രമുഖനും തൊടുപുഴ വിജയഗ്രൂപ്പ് ഉടമയുമായ മാന്ത ളിരുംപാറയിൽ എം

രവി നിര്യാതനായി

സംസ്കാരം വൈകിട്ട് തൊടുപുഴയിൽ

ഇന്ന് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഗുരുവായൂർ ഏകാദശി ഇന്നലെ പുലർച്ചെ മൂന്നിന് തുറന്ന ശ്രീകോവിൽ നാളെ രാവിലെ ഒൻപതുവരെ പൂജകൾക്കല്ലാതെ അടക്കി ല്ല

വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്ര ത്തിലേക്ക് നാമജപ്ര ഘോഷയാത്രയും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രഥ ഘോഷയാത്രയും ഉണ്ടായിരിക്കും ചെമ്പൈ സംഗീതോത്സവത്തിനും ഇന്ന് വൈകീട്ട് സമാപനമാകും ഇടുക്കിയിലെ ഉടുമ്പൻചോല ചിത്തിരപുരം രണ്ടാംമൈൽ റോഡിന്റെ നിർമാണം മന്ത്രി എം

വിക സനമെത്താത്ത മേഖലയിൽക്കൂടി കടന്നുപോകുന്ന റോഡ് ആറ് ഗ്രാമ ങ്ങളുടെയും വിനോദസഞ്ചാരരംഗത്തിന്റെയും വികസനത്തിന് വഴിതെ ളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു എറണാകുളം ചാന്തേലിപ്പാടം കാർഷികഗ്രൂപ്പിന്റെ നെൽകൃഷി കൊയ്ത്തുത്സവം മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർഗ്ലാസ് വള്ളങ്ങൾ നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് നടക്കും വാടി യിൽ മന്ത്രി ജെ

മത്സ്യ ബന്ധനഉപകരണ വായ്പയും മന്ത്രി വിതരണം ചെയ്യും കവി പി

ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കെ

മുരളീധരനാണ് പ്രകാശനകർമം നിർവഹി ച്ചത് ഇടുക്കിയിലെ ദേവികുളം താലൂക്ക് ഓഫീസിന്റെ നവീകരിച്ച പൈതൃ കമന്ദിരം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നാളെ ഉദ്ഘാടനം ചെയ്യും

കണ്ണൂർ തളിപ്പറമ്പ് ചുടലയിൽ രണ്ട് കിലോയിലേറെ കഞ്ചാവുമായി ഒരാളെ എക്സൈസ് പിടികൂടി കാസർകോട് പെരുമ്പളയിലെ എം